നാല് ദിവസത്തെ ഓൺലൈൻ മേള പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്യും

മുന്നോടിയായി കോവിഡ് വാക്സിൻ നൽകും

ഇക്കുറി പൊങ്കാല വീടുകളിൽ

പ്രധാന മന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി മേള ഉദ്ഘാടനം ചെയ്യും തദ്ദേശീയ പാവ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലേക്ക് ഒരു ചുവടു കൂടി എന്നതാണ് ലക്ഷ്യം തദ്ദേശീയമായ കളിപ്പാട്ട നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് മേള സംഘടിപ്പിക്കുന്നത്

നാല് ദിവസം നീളുന്ന മേളയിൽ രാജ്യത്തുടനീളമുള്ള കളിപ്പാട്ട നിർമ്മാതാക്കൾ ഉപഭോക്താക്കൾ വിദ്യാർത്ഥികൾ അദ്ധ്യാപകർ എന്നിവർ ഓൺല്ലെനായി പങ്കെടുക്കും

തദ്ദേശീയമായി ഉണ്ടാക്കിയ് ്തടിപ്പാവകൾ പരമ്പരാഗത ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ മുതൽ ആധുനിക കളിപ്പാട്ടങ്ങൾ വരെ മേളയിൽ പ്രദർശിപ്പിക്കും

കുട്ടികൾക്കായി പരമ്പരാഗത പാവനിർമ്മാണത്തെക്കുറിച്ചുള്ള പ്രത്യേക ക്ലാസുകളും ഉണ്ടാകും

തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഏപ്രിൽ ആറിന് ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും തമിഴ്നാട്ടിൽ നിലവിൽ ഭരണത്തിലുള്ള എ

എ ഡി എം കെ ബിജെപിയുമായി ചേർന്നാണ് മത്സരിക്കുന്നത്

എം

പുതുച്ചേരിയിൽ കോൺഗ്രസിലെ ആറ് എം എൽ എ മാർ ബിജെപിയിൽ എത്തിയതോടെ ഭരണം നഷ്ടപ്പെട്ടതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും ഇക്കുറി കേരളത്തിൽ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം ഇരട്ടിയിലേറെയായി

് എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും കോവിഡ് മുൻ നീർ പ്രവർത്തകരായി കണക്കാക്കിയാണ് വാക്സിൻ നൽകുക

കോവിഡ് കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികൾക്ക് ഓൺലൈനായും നാമനിർദേശ പത്രിക സമർപ്പിക്കാൻ അവസരമൊരുക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിനാൽ പോളിങ് സമയം ഒരു മണിക്കൂർ കൂടി നീട്ടും

തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും മാസ്ക് ധരിക്കൽ ശാരീരിക അകലം പാലിക്കൽ തുടങ്ങിയ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം വോട്ടർമാർക്ക് സാനിറ്റൈസറും കൈയുറയും നൽകും

സമൂഹമാധ്യമങ്ങൾക്കായി കേന്ദ്രം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ നിർദേശങ്ങൾ പഠിച്ചശേഷം സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടൽ സംബന്ധിച്ച് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമെങ്കിൽ കമീഷൻ പിന്നീട് പുറത്തിറക്കും പോളിങ് രാവിലെ ഏഴുമുതൽ വൈകിട്ട് ഏഴുവരെ വീട് കയറിയുള്ള പ്രചാരണത്തിൽ പരമാവധി അഞ്ചുപേർ മാത്രം റോഡ് ഷോയിലും മറ്റും ഒരു വാഹനവ്യൂഹത്തിൽ അഞ്ചു വാഹനങ്ങൾ മാത്രം രണ്ട് വാഹനവ്യൂഹങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് അര മണിക്കൂർ ഇടവേളയുണ്ടാകണം പത്രികാസമർപ്പണത്തിന് സ്ഥാനാർത്ഥിക്കൊപ്പം രണ്ടുപേർ മാത്രം എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും സാമൂഹിക അകലം മാസ്ക്ക് ധരിക്കൽ തുടങ്ങിയ കോവിഡ് മാനദണ്ഡങ്ങൾ കർക്കശമായി പാലിക്കണം കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ ദുരന്തനിവാരണ നിയമപ്രകാരം നടപടിന്യൂസ്ഡെസ്ക് ആകാശവാണി

ക്രിമിനൽ കേസിൽ പ്രതികളായ സ്ഥാനാർഥ്മികൾ ഇതുസംബന്ധിച്ച വിവരം അച്ചടി ടെലിവിഷൻ മാധ്യമങ്ങളിൽ ്പരസ്യപ്പെടുത്തണം ഒന്നിലധികം സംസ്ഥാനത്ത് എഡിഷന്റുള്ള പത്രങ്ങളിലും പ്രാദേശിക പത്രത്തിലും പരസ്യം നൽകണം

കോവിഡ് സാഹചരൃം പരിഗണിച്ച് ഈ വർഷം ക്ഷേത്രത്തിലെ അടുപ്പിൽ മാത്രമായിരിക്കും പൊങ്കാല സമർപ്പണം എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ എഴുന്നെള്ളിപ്പിനും മാറ്റമുണ്ടാകില്ല

ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു

നിലവിലുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ ഭാഗമായാണ് എല്ലാ റേഷൻ കാർഡുടമകൾക്കും സൌജനൃമായി വിഷു ഈസ്റ്റർ കിറ്റ് നൽകുന്നത്

ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കി

ദക്ഷിണ കൊറിയയിൽ ഇന്ന്ലെ ആദ്യമായി കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചു

ഏറ്റവും കൂടുതൽ പേർ കോവിഡ് ബാധിച്ച് മരിച്ച രാജ്യങ്ങളിൽ രണ്ടാമതാണ് ബ്രസീൽ

എൻ സ്ഥിരാംഗമായ യു കാവ് മോയുടെ പിന്തുണ ഐകൃരാഷ്ട്ര പൊതുസഭയിൽ ഔപചാരിക സമ്മേളനത്തിനിടെയാണ് അട്ടിമറിയെ അപലപിക്കുന്നതായി അദ്ദേഹം അറിയിച്ചത് മ്യാൻമറിന്റെ ജനാധിപത്യ പരിവർത്തനത്തിനായി പൂർണ്ണപിന്തുണ നൽകുന്നതായി സമ്മേളനത്തിൽ ഇന്ത്യ അറിയിച്ചു

എൻ മനുഷ്യാവകാശ ഏജൻസ്മിയുട്ട് വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിലപാട് തള്ളി ഇന്ത്യ